രാജ്യത്ത് പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ വിദേശ നിക്ഷേപം സ്വാഗതം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഹ്രസ്വകാല ആരോഗൃ ഇൻഷുറൻസ് പദ്ധതികൾ ആവിഷ്ക്കരിക്കാൻ ഇൻഷുറൻസ് നിയന്ത്രണ അതോറിറ്റിയുടെ അനുമതി

കേരളത്തിൽ സമ്പർക്കത്തിലൂടെ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ നിയന്ത്രണം കർശനമാക്കി

രാജ്യത്തെ കടുവകളുടെ കണക്കെടുപ്പ് ഗിന്നസ് ലോക റിക്കോർഡിലെത്തിയതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ

സംശുദ്ധമായ ഊർജ്ജത്തിന്റെട്ട് ഏറ്റവും നല്ല വിപണിയാണ് ഇന്ത്യയെന്നും അദ്ദേഹം പുറ്ഞ്ഞു് മധ്യപ്രദേശിലെ റേവയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സൌരോർജ്ജ പദ്ധതി വീഡിയോ ലിങ്കിലൂടെ ഉദ്ഘാട്ടുന്നു ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

ഇറക്കുമതി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി സ്റ്റോറേജ് ബാറ്ററികൾ ഫോട്ടോ വോൾട്ടായിക്സ് സെല്ലുകൾ തുടങ്ങിയവ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിന് സർക്കാർ ഒട്ടേറെ സംരംഭങ്ങൾ തുടങ്ങുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഡൽഹി തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ രണ്ടും മൂന്നും സ്ഥാനങ്ങളിലാണ്

കൊറോണ കവച് എന്ന ഇൻഷുറൻസ് പ്രേർളിസികളിലൂടെ കൊറോണ രോഗ ചികിത്സ ചെലവുകൾക്ക് പ്രിരക്ഷ ലഭിക്കും

ഐ ആർ ഡി എ ഐ യുടെ അനുമതിയെ തുടർന്ന് വിവിധ കമ്പനികൾ മൂന്നരമാസം ആറരമാസം ഒൻപതരമാസം എന്നിങ്ങനെയുള്ള ഹ്രസ്വകാല കൊറോണ കവച് പോളിസികൾ പ്രഖ്യാപിച്ചു രണ്ടാഴ്ചക്കാലമുള്ള വീട്ടു ചികിത്സയ്ക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതായിരിക്കും ഈ പോളിസികൾ

സാമൂഹിക അകലവും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ജനങ്ങൾ കൂടുന്നത് ഒഴിവാക്കേണ്ടതാണെന്ന് സർക്കാർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു രോഗവ്യാപനത്തിന്റെ കേന്ദ്രങ്ങളായി മാറുന്ന മാർക്കറ്റുകൾ മിക്ക ജില്ലകളിലും അടച്ചു

പത്തനംതിട്ട കുമ്പഴ മാർക്കറ്റിങ്ലൂ രണ്ട് മൽസ്യതൊഴിലാളികളും രോഗബാധിതരായി

നാഗാലാന്റിൽ ഇതുവരെ കോവിഡ് ബാധിച്ചുള്ള മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല

അത്തരമൊരു സമിതി രൂപീകരിച്ചിട്ടില്ലന്നും ജനങ്ങൾ വ്യാജവാർത്തകളിലും തെറ്റായ പ്രചാരണങ്ങളിലും പെടാതെ ജാഗ്രത പാലിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു

ക്യാമറ നിരീക്ഷണം ഉപയോഗിച്ച് ലോകത്തെ ഏറ്റവും വലിയ വന്യജീവി കണക്കെടുപ്പ് വിഭാഗത്തിലാണ് റിക്കോർഡ് രാജ്യത്തെ കടുവകളുടെ എണ്ണം ഇരട്ടിയാക്കാൻ നേരത്തെ സങ്കൽപ് സേ സിദ്ധി പദ്ധതിയിലൂടെ നടപടികൾ സ്വീകരിച്ചിരുന്നു

വടക്കൻ കശ്മീരിലെ കുപ്വാര ജില്ലയിൽ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള നൌഗാം പ്രദേശത്താണ് സംഭവം

വളർച്ചയ്ക്ക് മുൻതൂക്കം നൽകുമ്പോൾ തന്നെ സാമ്പത്തിക സ്ഥിരതയ്ക്കും തുല്യ പ്രാധാനൃം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു

സ്വയം സഹായ സംഘങ്ങളിലൂടെ ആവിഷ്കരിക്കുന്ന പദ്ധതി തിരുച്ചിറപ്പള്ളിക്ക് സമീപം നാമക്കലിൽ സംസ്ഥാന വനിതാ ക്ഷേമ മന്ത്രി ഡോ വി സരോജ ഉദ്ഘാടനം ചെയ്തു

അടുത്ത രണ്ടു ദിവസം കൂടി അരുണാചലിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്